ദേശീയ ശക്തിപ്പെടുത്തുന്നതിന്റെ സുരക്ഷ ന് ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക നയതന്ത്ര വിഭാഗത്തിന് രൂപം നൽകും

വികസന പദ്ധതിക്ക് കേന്ദ്രമന്ത്രി നിതിൻഗഡ്കരി ഇന്ന് തുടക്കം കുറിക്കും

തെരഞ്ഞെടുപ്പ് വിജയകരമായി നടന്നതിൽ പ്രധാന മന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുളള മന്ത്രി ജിതേന്ദ്ര സിംഗ് സംതൃപ്തി രേഖപ്പെടുത്തി സംസ്ഥാനത്തെ രാഷ്ട്രീയക്കാർക്കും ജനങ്ങൾക്കും തീവ്രവാദ ഭീഷണിയിൽ നിന്നും മോചനം നേടേണ്ട സമയമാണ് ഇതെന്ന് കേന്ദ്ര മന്ത്രി പറഞ്ഞു കശ്മീരിൽ സ്വയം ഭരണത്തിനു വേണ്ടി വാദിക്കുന്നവരുടെ കാപട്യം സംസ്ഥാന ജനത തിരിച്ചറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

കശ്മീർ മേഖലയിൽ കാർഗിൽ ജില്ലയിലാണ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്

സോനാപെട്ടിൽ റെയിൽവേ കോച്ച് പുനരുദ്ധാരണ യൂണിറ്റിനും പ്രധാനമന്ത്രി സന്ദർശന വേളയിൽ തുടക്കം കുറിക്കും വടക്കൻ മേഖലയിലെ റെയിൽവേ കോച്ച് പുനരുദ്ധാരണപ്രവർത്തനങ്ങൾക്ക് യൂണിറ്റ് നിലവിൽ വരുന്നതോടെ വൻമുന്നേറ്റമുണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത്

തജിക്കിസ്താൻ സന്ദർശനത്തിന്റെ അവസാന ദിനമായ ഇന്ന് രാഷ്ട്രപതി പ്രധാനമന്ത്രി കോഹിർ റസൂൽ സാദ ഉൾപ്പെടെയുളള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും

മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് അറിയിച്ചിട്ടു ണ്ട്

സംസ്ഥാനത്ത് ഇന്നലെ വരെ അനുഭവപ്പെട്ട ശക്തമായ മഴക്ക് ഇന്ന് മുതൽ ശമനം വരുമെന്നാണ് വിലയിരുത്തൽ

അറബിക്കടലിൽ രൂപംകൊണ്ട ന്യൂനമർദ്ദം അതിതീവ്രി ചുഴലിക്കാറ്റായി രൂപംകൊണ്ട് ഒമാൻ തീരത്തേക്ക് നീങ്ങാൻ തടുങ്ങി

ഇന്നും തെക്കൻ കേരളത്തിലും ഇടുക്കി പത്തനംതിട്ട എന്നിട്കുളം ജില്ലകളിലും മഴ ശക്തമാകാനിടയുണ്ട് അതേസമയം ബംഗാൾ ഉൾക്കടലിലും ഇന്ന് ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫ്ർമേഷൻ സർവ്വീസ് മുന്നറിയിപ്പ് നൽകുന്നു

തമിഴ്നാട് ഒഴികെ കർണാടക ആന്ധ്രപ്രദേശ് ഒഡിഷ ബംഗാളിന്റെ പടിഞ്ഞാറൻ മേഖല എന്നിവിടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകും

കടലിൽ പോയവരെ മിക്കവാറും തിരികെ എത്തിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നലെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ച ദുരിതാശ്വാസപ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ യോഗത്തിലെ കണക്കാണിത്

വീടുകളുടെ നിർമാണവും അറ്റകുറ്റപ്പണിയും വേഗം പൂർത്തിയാക്കണമെന്നു മുഖ്യമന്ത്രി നിർദേശ്ശിച്ചു

രാജ്യ സുരക്ഷയിലും തന്ത്രപ്രധാന വിഷയങ്ങളിലും പ്രധാനമന്ത്രിക്ക് ഉപദേശം നൽകുന്ന ദേശീയ സുരക്ഷാ കൌൺസിലിന് സഹായിക്കുകയാണ് സ്ട്രാറ്റജിക് പോളിസി ഗ്രൂപ്പിന്റെ ലക്ഷ്യമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലാണ് ഗ്രൂപ്പിന്റെ അധ്യക്ഷൻ നീതി ആയോഗ് വൈസ് ചെയർമാൻ കാബിനറ്റ് സെക്രട്ടറിമൂന്ന് സേനകളുടെയും തലവന്മാർ റിസർവ് ബാങ്ക് ഗവർണർ വിദേശകാര്യ രാജ്യരക്ഷാ സെക്രട്ടറിമാർ രാജ്യരക്ഷാ മന്ത്രിയുടെ ശാസ്ത്രീയ ഉപദേഷ്ടാവ് തുടങ്ങിയവർ അംഗങ്ങളാണ്

സമയപരിധിട്ടണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നതിനെ ത്തുടർന്നാണ് തീരുമാനം

ഈ മാസം മുതൽ അടുത്ത ഫെബ്രുരി വരെ ബോണ്ടുകൾ ബാങ്കുകളിലും പോസ്റ്റോഫീസുകളിലും സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷനിലും ലഭ്യമാണ്

നേരത്തെ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ സന്ദീപ് ചൌധരി ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം നേടിതന്നിരുന്നു

ഭരണപരവും തന്ത്രപരവൂർ സൈനികവിന്യാസവും സംബന്ധിച്ച കാര്യങ്ങൾ ഒരാഴ്ച നീളുന്ന സമ്മേളനം ചർച്ച ചെയ്യും കഴിഞ്ഞ ഏപ്രിലിലും സമാനമായ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു

നായർ സർവീസ് സൊസൈറ്റി ദേശീയ അയ്യപ്പ ഭക്തജന വനിതാ കൂട്ടായ്മ എന്നിവർ സുപ്രീംകോടതിയിൽ ഇന്നലെ റിവ്യൂ ഹർജി ഫയൽ ചെയ്തിരുന്നു

വൈകിട്ട് മൂന്ന് മണിക്ക് സെക്രട്ടറിയറ്റ് ദർബാർ ഹാളിൽ മുഖൃ മന്ത്രി പിണറായി വിജയൻ നമ്പിനാരായണന് തുക കൈമാറും സുപ്രിം കോടതി വിധി പ്രകാരമുളള നഷ്ടപരിഹാരമാണ് നൽകുന്നത്

ജില്ലാതല ബാങ്കേഴ്സ് സമിതിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്